ബുദ്ധ ദർശനങ്ങളുടെ ഉത്ഭവകേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യ അഭിമാനിക്കുന്നതായി രാഷ്ട്രപതി രാം നാഥ് കോവിന്ദ് ഇന്ന് ലോകം നേരിടുന്ന അസാധാരണമായ വെല്ലുവിളികൾക്ക് ബുദ്ധ ധർമ്മം ശാശ്വത പരിഹാരമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

അഹിംസ ദയ സ്നേഹം എന്നിവയിൽ അധിഷ്ഠിതമാണ് ബുദ്ധദർശനങ്ങളെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു

ജൂലൈയിലെ ആദ്യ പൌർണമി ദിനമായ ആഷാഢ പൌർണമിയിലാണ് ലോകമെമ്പാടുമുള്ള ബുദ്ധ മതാനുയായികൾ ധർമ്മചക്ര ദിനം ആഘോഷിക്കുന്നത്

ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിനെക്കുറിച്ച് വളരെയ ധികം പ്രതീക്ഷയുണ്ടെന്നും ഈ പ്രതീക്ഷ യുവാക്കളിലാ ണെന്നും അദ്ദേഹം വ്യക്തമാക്കി

ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ദൌർഭാഗൃകരമാ ണെന്നും സൈന്യത്തോടുള്ള ചിലരുടെ മനോഭാവമാണ് ഇതി ലൂടെ വൃക്തമാകുന്നതെന്നും കരസേന അറിയിച്ചു

കോവിഡ് മഹാമാരിയെതുടർന്ന് ജനറൽ ആശുപത്രിയുടെ ഒരു ഭാഗം കോവിഡ് വാർഡാക്കി മാറ്റി ഗാൽവാനിൽ പരിക്കേറ്റ സൈനികർക്ക് കോവിഡ് ഭീഷണിയി ല്ലാത്ത വാർഡിലാണ് ചികിത്സ നൽകുന്നതെന്നും സൈനൃം അറിയിച്ചു

മേഖലയിലെ സംതുലനം അട്ടിമറിക്കാനുള്ള ചൈനയുടെ ഏകപക്ഷീയമായ ശ്രമങ്ങളെ ശക്തമായി എതിർക്കുന്നതായി ജാപ്പനീസ് അംബാസഡർ സതോഷി സുസുക്കി വിദേശകാര്യ സെക്രട്ടറി ഹർഷ് വർധൻ ശൃംഖലയെ ടെലിഫോണിലൂടെ അറിയിച്ചു

സമാധാനത്തി ലൂന്നിയ ഇന്ത്യയുടെ നയങ്ങളെ ജപ്പാൻ വിലമതിക്കുന്നുവെന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്തു

ഇന്തൃയുടെയും ടിബറ്റി ന്റെയും ദേശീയ പതാകു ഉയർത്തി ചൈന വിരുദ്ധ മുദ്രാവാകൃ ങ്ങളുമായിട്ടായിരുന്നു പ്പെതിഷേധം

സ്വാമിവിവേകാനന്ദന്റെ ചരമ വാർഷികത്തോട് അനുബന്ധിച്ച് ടിറ്ററിലാണ് അദ്ദേഹം ഇക്കാര്യം വൃക്തമാക്കിയത്

ഐ എസ്

എസ്

കാർക്കും രോഗം ബാധിച്ചിട്ടുണ്ട്

ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ വിലയിരുത്താ്ൻ മുഖ്യമന്ത്രി ബി

യെദ്യൂരപ്പയുടെ നേതൃത്വത്തിൽ ഇന്ന് ബംഗളൂരുവിൽ ഉന്നതതല യോഗം ചേർന്നു

കോവിഡ് രോഗികളുടെ എണ്ണം വർധിക്കുന്ന സാഹചര്യത്തിലാണിത്

അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ ആദ്യഫലങ്ങൾ പ്രതീക്ഷിക്ക്ട്ടുമെന്ന് ഗെബ്രിയേസസ് അറിയിച്ചു

അടുത്ത ആഴ്ചയാണ് സംഘം ചൈനയിലെത്തുക

അറായിൽ തെരച്ചിൽ നടത്തുകയായിരുന്ന പൊലീസ് അടക്കമുള്ള സേനാ വിഭാഗത്തിനു നേരെ തീവ്രവാദികൾ ൂ ്ആക്മണം നടത്തുകയായിരുന്നു സൈന്യത്തിന്റെ തിരിച്ചടിയില്ലാണ് ഒരാൾ കൊല്ലപ്പെട്ടത്